കെ ഒഴികെ യൂറോപ്പിൽ നിന്നുള്ള് യ്ാത്രക്കാർക്ക് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തി

അൽപ്പസമയത്തിനകം തുടക്കം

കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ വർധന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് തീരുമാനം നയതന്ത്ര ഔദ്യോഗിക തൊഴിൽ പ്രോജക്ട് വീസകൾ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവ ഒഴികെയുളളവയ്ക്ക് ഈ നിരോധനം ബാധകമാണ് അടിയന്തര കാരണങ്ങളാൽ ഇന്ത്യയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന വിദേശ പൌരന്മാർ അടുത്തുള്ള ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയവുമായി ബന്ധപ്പെടണം

അനിവാര്യമല്ലാത്ത എല്ലാ വിദേശയാത്രകളും ഒഴിവാക്കാനും ഇന്ത്യൻ പൌരൻമാർക്ക് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്

കരസേനയുടെയും ഐ

ബി

രാജ്യമെമ്പാടും കർശന ജാഗ്ഗത പാലിക്കണം

നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ വൈറസ് ലോക രാജ്യങ്ങളിലേക്ക് പടരുന്ന സാഹചര്യത്തിലാണിത് ഒരാഴ്ചയ്ക്കിടെ നിരവധി രാജ്യങ്ങളിലേക്ക് വൈറസ് പടർന്നതായി ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദ്നോം ഗബ്രിയേസിസ് ജനീവയിൽ പറഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലയിലേക്ക് വൈറസ് പടരാൻ സാധ്യതയുണ്ട് ഇത്തരമൊരു വൈറസ് ലോകമാകെ ഈ രീതിയിൽ പടരുന്നത് ആദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു

നാളെ അർദ്ധരാത്രി മുതൽ നിയന്ത്രണം നിലവിൽ വരും

കെ യിൽ നിന്നുള്ളവർക്ക് ഇത് ബാധകമായിരിക്കില്ല

നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ മേഖലകൾക്കും സംഭാവന നൽകുന്ന വിദേശത്തുള്ള നമ്മുടെ നാട്ടുകാരെ ഇവിടേക്കു വരുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന സർക്കുലർ ഉടൻ പിൻവലിക്കണമെന്ന് സഭ കേന്ദ്രസർക്കാരിനോട് ആവശ്യപ്പെട്ടു രോഗം പടരുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഈ ചട്ടങ്ങളിൽ ഇളവുവരുത്താൻ കേന്ദ്രം ശ്രദ്ധിക്കണം

മുഹമ്മദ് ഫൈസൽ ആവശ്യപ്പെട്ടു നിലവിലെ പരിശോധനകൾ അപര്യാപ്തമാണെന്നും മൂന്ന് തുറമുഖങ്ങളിലും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ സജ്ജമാക്കണമെന്നും അദ്ദേഹം ആവശ്യപെട്ടു

മറ്റൊരു കുടുംബാംഗത്തിന് ഈ മുറി പങ്കിടണമെന്നുണ്ടെങ്കിൽ രോഗിയുമായി ഒരു മീറ്റർ അകലം പാലിക്കാനും നിർദ്ദേശമുണ്ട് ര്യോഗ്ബാധ സംശയിക്കുന്നവർ മുതിർന്ന വ്യക്തികൾ ഗർഭിണികൾ കുട്ടീക്ൾ എന്നിവരിൽ നിന്നും അകലം പാലിക്കണം കൊറോണ്ട് ഉെവ്റസ് ബാധിച്ച വ്യക്തി ഒരു കാരണവശാലും വിവാഹം മരണാനന്തര ചട്ടങ്ങുകൾ തുടങ്ങിയവയിൽ പങ്കെടുക്കാൻ പാടില്ല സോപ്പും വെളളവും ഉപയോഗിച്ച് കൈകൾ നിരന്തരം കഴുകുക ഹാന്റ് സാനിറ്റൈസർ ഉപയോഗിക്കുക തുടങ്ങിയ പൊതു നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതാണ്

ചുമ പനി ശ്വാസതടസം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഹെൽപ്പലൈൻ നമ്പരിലോ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ അറിയിക്കണം

പരപ്പനങ്ങാടി പാലത്തിങ്ങലിൽ ഒരു വീടിനോട് ചേർന്നുനടത്തുന്ന ഫാമിലെ കോഴികൾ ചത്തത് പക്ഷിപ്പനി ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചു

പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ മലപ്പുറം കലക്ടറേറ്റിൽ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ അടിയന്തരയോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി

സംഘർഷത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും കുറ്റക്കാർക്കെതിരെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നടപടി സ്വീകരിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇന്റ്ളല നടന്ന ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉറപ്പു നൽകിയിരുന്നു ഇത് സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കേന്ദ്രസർക്കാർ കത്ത് നൽകിയിട്ടുണ്ട്

ഫെഡറൽ തത്വങ്ങൾ പാലിച്ച് യോജിച്ച് പ്രവർത്തിക്കാൻ ലെഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദിയോടും മുഖ്യമന്ത്രി വി നാരായണ സ്വാമിയോടും കോടതി നിർദ്ദേശിച്ചു

ഈ മാസം പത്ത് മുതൽ തീരുമാനത്തിന് പ്രാബല്യമുണ്ട്

ഇന്ന് വ്യാപാരം ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ നിഫ്റ്റി പതിനായിരത്തിന് താഴെ എത്തി

സ്വർണ്ണവില കുറഞ്ഞു

ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും മത്സരത്തിന്റെ തത്സമയ വിവരണം പ്രക്ഷേപണം ചെയ്യും